കേരളം ഉൾപ്പെടെ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ഉയർന്ന രോഗ വ്യാപനമെന്ന് വിലയിരുത്തൽ

പി ജയരാജൻ

എൽ ക്രിക്കറ്റിൽ സൺ റൈസേഴ്സിന് വിജയം

മഹാരാഷ്ട്ര കേരളം എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്

കേരളത്തിലും പശ്ചിമ ബംഗാളിലും കൂടുതലായി പുതിയ കേസുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു

രുമ പണ്ടും മഹാമാരികളെ മനുഷ്യരാശി നേരിട്ടിട്ടുണ്ടെന്നും പ്രത്യാശ കൈവിടാൻ പാടില്ലെന്നും പ്രമുഖ എഴുത്തുകാരൻ കെ

രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ്

ഇത്തരം മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമയത്തിലും മാറ്റമുണ്ടായിരിക്കും

രുര പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ അടുത്ത ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മൂന്നിടങ്ങളിൽ ഇന്ന് റാലികളിൽ പങ്കെടുക്കും

കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും മഹാസഖ്യത്തിന്റെ രണ്ട് തെരഞ്ഞെടുപ്പ് റാലികളിൽ ഇന്ന് പങ്കെടുക്കും സംസ്ഥാനത്തെ കൂടുതൽ ഗവൺമെന്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാക് അക്രഡിറ്റേഷൻ നേടേണ്ടത് അത്യാവശ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു

കോളേജുകൾക്കാണ് ഇതുവരെ നാക് അക്രഡിറ്റേഷൻ ലഭിച്ചത്

രംഭ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്ത ഭിന്നശേഷിക്കാർക്കായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന കൈവല്യ സമഗ്ര തൊഴിൽ പുനരധിവാസ പദ്ധതിയുടെ ധനസഹായ വിതരണം മറ്റന്നാൾ തിരുവനന്തപുരത്ത് നടത്തും

ഇത് സംബന്ധിച്ച ധാരണാപത്രം മന്ത്രിമാരായ ടി പി രാമകൃഷ്ണന്റെയും കെ

ശൈലജയുടെയും സാന്നിധ്യത്തിൽ ഇന്നലെ ഒപ്പുവെച്ചു

രും ജമ്മു കശ്മീരിൽ രണ്ട് ഭീകര പ്രവർത്തകരെ സൈന്യം വെടിവെച്ച് കൊന്നു ബുധ്ഗം ജില്ലയിലെ അരിബാഗ് ഗ്രാമത്തിലാണ് സുരക്ഷാ സേനയ്ക്ക് നേരെ ഭീകരർ ആക്രമണം നടത്തിയത്

വടകര നാരായണ നഗരത്ത് ആരംഭിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വടകരയിൽ കളരി അക്കാദമി സ്ഥാപിക്കാൻ നടപടികൾ വേഗത്തിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു

ഇന്ന് വൈകിട്ട് അബുദാബിയിൽ മുംബൈ ഇന്ത്യൻസ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ നേരിടും രും നെല്ലു സംഭരണവുമായി ബന്ധപ്പെട്ട നിസ്സഹകരണ സമരത്തിൽ നിന്ന് പിൻമാറാൻ മില്ലുടമകൾ തീരുമാനിച്ചു മില്ലുടമകളുടെ സംഘടനകളുമായി മന്ത്രിമാരായ പി തിലോത്തമൻ വി എസ് സുനിൽകുമാർ കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം

മില്ലുടമകളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു മാസത്തിനകം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേരാമെന്ന് മന്ത്രിമാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്

ജയരാജനും കെ ടി ജലീലും ഇന്ന് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജസിട്രേറ്റ് കോടതിയിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന മന്ത്രിമാരുടെ ആവശ്യം ഹൈക്കോടതി തള്ളുകയായിരുന്നു അന്ന് എം എൽ

അടുത്ത ചൊവ്വാഴ്ച വിചാരണ കോടതി കേസ് വീണ്ടും പരിഗണിക്കും രുര ഗ്രാമങ്ങളിൽ നിന്ന് അകന്നുപോയ പൊതു ഇടങ്ങളെ തിരികെ കൊണ്ടുവരാനാണ് പുതിയ തിയറ്റർ സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നതെന്ന് മന്ത്രി എ

പയ്യന്നൂരിലെ ഗ്രാമീണ തിയറ്റർ സമുച്ചയത്തിന്റെ നിർമ്മാണം ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രംഭ കാസർകോട് ചെങ്കള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് ചെർക്കളയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് മന്ത്രി കെ

ശൈലജ ഓൺലൈനിൽ തറക്കല്ലിട്ടു രണ്ട് കോടിയോളം രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് രുമ തിരുവനന്തപുരത്ത് വാട്ടർ അതോറിറ്റിയുടെ ജല സംഭരണികൾക്ക് മേൽ സ്ഥാപിച്ച സൌരോർജ്ജ നിലയങ്ങളുടെ പ്രവർത്തനം മന്ത്രി കെ

രുര കാസർകോട് എടനീർ മഠത്തിൽ സ്വാമി കേശവാനന്ദ ഭാരതിയുടെ പിൻഗാമിയായി സ്വാമി സച്ചിദാനന്ദ ഭാരതി ഇന്ന് പീഠാരോഹണം ചെയ്യും

സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് ഉച്ചയ്ക്ക് ചേരുന്ന ധാർമ്മിക സമ്മേളനം കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും

ഇന്നത്തെ സമര പരിപാടി പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്യും

ഐ അബ്ദുൾ അസീസ് കുറ്റപ്പെടുത്തി ഇത് സംബന്ധിച്ച കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കിരിക്കെ ധൃതി പിടിച്ച നീക്കം നടത്തിയത് പ്രീണന നയമാണെന്ന് അമീർ കോഴിക്കോട്ട് ആരോപിച്ചു രും തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ നൽകിയ മുൻകൂർ ജാമ്യഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന് ഉണ്ടായേക്കും കസ്റ്റംസും എൻഫോഴ്സ്മെന്റ് വിഭാഗവും ജാമ്യം അനുവദിക്കരുതെന്ന് കോടതിയിൽ വാദിച്ചു

തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നാക്ക സംവരണം മുന്നണി വിപുലീകരണം ഉൾപ്പെടെ വിഷയങ്ങൾ ചർച്ചയാകുമെന്നാണ് റിപ്പോർട്ട് രുര പോളിടെക്നിക് ഡിപ്ലോമ പ്രവേശനത്തിന്റെ അന്തിമ റാങ്ക് ലിസ്റ്റും ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റും ഇന്ന് പ്രസിദ്ധീകരിക്കും

രും രണ്ടാം വർഷ ഹയർ സെക്കൻറി വൊക്കേഷണൽ ഹയർ സെക്കന്ററി സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷകളുടെ ഫലം രാവിലെ പ്രസിദ്ധീകരിക്കും